ശബരിമലയിൽ പത്ത് ദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിച്ച് നാളെ ആറാട്ട്

ഇത്തരം രാഷ്ട്രീയ പാർട്ടികളാണ് മാധ്യമ സ്വാതന്ത്യത്തിനും നിയമ സംവിധാനത്തിനും കടിഞ്ഞാണിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് കുറിപ്പിലാണ് ഈ വിമർശനം ആശയ പ്രകാശന സ്വാതന്ത്ര്യത്തിനെതിരെ രാജ്യത്ത് ആദ്യമായി ഭരണഘടന ഭ്ദേദ്രഗതി കൊണ്ടുവന്നത് കോൺഗ്രസ് ഗവൺമെന്റാണെന്ന് പശ്ചീ മോദി പറഞ്ഞു

യുകപ്പിട്ട എ് മന്ത്രിസഭയിലെ അംഗത്തിന്റെ മകന് എതിരായ ടിറ്റർ സന്ദേശത്തിന്റെ പേരിൽ കുറെ നിരപരധികളെ ജയിലിലാക്കി കർണാടകയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ യുവാക്കളെ അറസ്റ്റ് ചെയ്തതും ജെ ഡി എസ് കോൺഗ്രസ് ഗവൺമെന്റാണെന്നും ശ്രീ മോദി കുറ്റപ്പെടുത്തി

ജനാധിപത്യ മൂലൃങ്ങൾ നിലനിർത്താൻ നാലാം തൂണായ മാധ്യമങ്ങൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ നടത്തിയ അടൽ ബിഹാരി വാജ്പേയി അനുസ്മരണ പ്രഭാഷണത്തിലാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഭീതികൂടാതെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കുന്നു ഇത്തരത്തിൽ ശരിയായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ എല്ലാ മാധ്യമങ്ങൾക്കും സാധിക്കട്ടെയെന്ന് ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി സ്യോഫിയ

ജമ്മുകാശ്മീരിൽ കോൺഗ്രസുമായി ധാരണ ഉണ്ടാക്കിയെന്ന റിപ്പോർട്ട് പി ഡി പി അധ്യക്ഷ മെഹ്ബൂബ മുഫ്തി തള്ളി

ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വിജ്ഞാപനവും പുറത്തിറങ്ങിയതോടെ മിക്ക സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ചു

ഹപ്തയിലെ ഇംഫാലിൽ പൊതുജനറാലിയേയും അദ്ദേഹം അഭിസംബോധന ചെയ്യും

മെം ഭീ ചൌക്കീദാർ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളുടെ ഭാഗമായാണിതെന്ന് ബി ജെ പി മാധ്യമ സമിതി അറിയിച്ചു

ന്യൂഡൽഹിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷ അമിത് ഷായുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചത്

എഫിന് പിന്നാലെ യു

എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കേര്ളവും തിരഞ്ഞെടുപ്പ് ചൂടിലായി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും എൻ

എ യും ആദ്യഘട്ട പ്രചാരണത്തിലാണ്

ഗൃഹസമ്പർക്ക പരിപാടികളും കുടുംബയോഗങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത് മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ

ജെ

ആദ്യമായി ഭിന്നലിംഗ വിഭാഗക്കാർ വോട്ട് രേഖപ്പെടുത്തിയത്

വി എസ് പി പോർട്ടൽ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും പേര് ചേർക്കാം

ഇതോടൊപ്പം കളക്ട്രേറ്റ് താലൂക്ക് വില്ലേജ് എന്നിവിടങ്ങളിലും വോട്ടർ പട്ടിക പരിശോധി ക്കാം

ജി ലോക്പാൽ സമിതിയെ നിയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്നലെ രാത്രിയാണ് ഉത്തരവിറക്കിയത്

മുൻ ചീഫ്ട് ജസ്റ്റിസുമാരായ ദിലിപ് ബി ബോസ്ലെ പ്രദിപ് കുമാർ മൊഹ്യന്തി അഭിലാഷ കുമാരി നിലവിൽ ഛത്തീസ്ഗഡ് ഹൈക്കോട്ടതി ചീഫ് ജസ്റ്റിസായ അജയ് കുമാർ ത്രിപാഠി എന്നിവരാണ് ലോക്പാൽ സമിതിയിലെ മറ്റ് ജുഡീഷ്യൽ അംഗങ്ങൾ ന്റില് ജുഡീഷ്യൽ ഇതര അംഗങ്ങളും സ മിതിയിലുണ്ട്

ദേശീയ കുറ്റാന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ ഇവർ സംഘടനയ്ക്ക് സഹായം നൽകിയതായി തെളിഞ്ഞിരുന്നു

ഇന്നലെ രാത്രി വൈകിയായിരുന്നു ദുരന്തം

ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് ധനസഹായം നൽകുമെന്ന് ജില്ലാഭരണകൂടം അറിയിച്ചു

മാൻഹോളിനുള്ളിൽ ക്യറിയ നാലാമനായി ഫയർഫോഴ്സ് തെരച്ചിൽ തുടരുകയാണ്

ബന്ദിന് ആഹ്വാനം ചെയ്യുന്ന സംഘടനകൾക്കെതിരെ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടു

കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശക്തമായ പോലീസ് സുരക്ഷ സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്

വേന്റൽമിഴ് ഇനിയും ശക്തമായി ലഭിച്ചുതുടങ്ങിയിട്ടില്ല

പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ സൂര്യാഘാതം മൂലമുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്